ആരോഗൃപ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും

സീഷെൽസ് മൌറീഷ്യസ് എന്നിവിടങ്ങളിൽ എത്തും

വിഭാഗങ്ങൾക്ക് പത്തു ശതമാനം സംവരണം ഏർപ്പെടുത്തി

ഐഎസ്എല്ലിൽ ചെന്നൈയിൻ എഫ്

മോഹൻബഗാന് വിജയം

വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് വാക്സിൻ കുത്തിവയ്പ്പിനു വിധേയരായവർ അനുഭവം പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും പിന്നീട് വാക്സിൻ കുത്തിവയ്പ്പിന്റെ തുടർന്നൂള്ളിക്സുഗമമായ നടത്തിപ്പു സംബന്ധിച്ച് ശാസ്ത്രജ്ഞർ രാഷ്ട്രീടിയ നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും

അസം ഗവർണർ ജഗദീഷ് മുഖി മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് തുടങ്ങിയവർ പങ്കെടുക്കും

ആരോഗ്യ സാമ്പത്തിക മേഖലയിൽ ക്ടോവിഡിന്റെ പ്രത്യാഘാതം മറികടക്കാൻ സാധ്യമായ എല്ലാ സ്റ്റ്രായ്പും അന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാഗർമിഷന്റെ ഭാഗമായി സീഷെൽസുമായി കാത്തു സൂക്ഷിക്കുന്ന സവിശേഷ ബന്ധത്തിന്റെ പ്രതിഫലനമാണ് നടപടി

അതേസമയം ഒരു ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ ഇന്ന് മൌറീഷ്യസിലും എത്തും

ഒരു ദ ദശലക്ഷം കോവിഡ് വാക്സിൻ എത്തിച്ചതിന് ഇന്ത്യക്ക് നന്ദി അറിയിച്ച നേപ്പാൾ പ്രധാനമന്ത്രി കെ

ഇന്ത്യൻ നിർമ്മിത വാക്സിൻ ആഗോള തലത്തിൽ മഹാമാരിയെ നേരിട്ടാൻ മുതൽക്കൂട്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

വാക്സിൻ പ്രയോഗത്തിന്റെ വിധവും മാലിന്യ നിർമ്മാർജ്ജനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് പരിശീലനം നൽകിയത്

കാർഷിക നിയമങ്ങൾ ഒരു വർഷത്തേക്ക് മരവിപ്പിക്കാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്

ഉന്നതതല അവലോകന യോഗത്തിനു ശേഷം ഉചിതമായ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്ന് മുഖ്യമന്ത്രി കെ

നിലവിലുള്ള സംവരണ വിഭാഗങ്ങളെ ബാധിക്കാതെയാണ് തൊഴിൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്നതെന്ന് സർക്കാർ വൃക്തമാക്കിയിട്ടുണ്ട്

കോടികൾ വിലമതിക്കുന്ന ലഹരിമരുന്നും പണവും വെടിക്കോപ്പുകളും റെയ്ഡിൽ പിടിച്ചെടുത്തു

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്താണ്

ന്യൂസ്ഡസ്ക് ആകാശവാണി

ആകാശവാണി വാർത്തകൾക്കു നല്കിയ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിലെ ജർമ്മൻ സ്ഥാനപതി വാൾട്ടർ ജെ ലിൻഡറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

എന്നിന്റെ വിശ്വാസൃത നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു

നൽഗൊണ്ട ജില്ലയിലെ അങ്കാടിപ്പേട്ടിൽ ഓട്ടോറിക്ഷയും ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടം

മരിച്ചവരിൽ അധികവും സ്ത്രീകളും കർഷകത്തൊഴിലാളികളുമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ സംഭവസ്ഥലത്തുതന്നെ മരിച്ചു

ചന്ദ്രശേഖർ റാവു അനുശോചനം രേഖപ്പെടുത്തി

ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളാണ് മരിച്ചത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കൂടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചു